സംസ്ഥാനതല പരിപാടി രാവിലെ കോഴിക്കോട്ട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

വാർത്തകൾ വിശദമായി പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങും

മറ്റ് ദിവസങ്ങളിൽ രാജ്യസഭ രാവിലെയും ലോക്സഭ ഉച്ചകഴിഞ്ഞുമായിരിക്കും ചേരുന്നത് കോവിഡ് കാലത്തെ രോഗവ്യാപനം തടയുന്നതിന് കർശന ആരോഗ്യ സുരക്ഷാ ചട്ടങ്ങൾ പാലിച്ചാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത് ചോദ്യോത്തര വേളയും സ്വകാര്യ ബിൽ അവതരണവും സമ്മേളനത്തിൽ ഉണ്ടാവില്ല ശൂന്യവേളയിലും നിയന്ത്രണമുണ്ട്

ശനി ഞായർ ദിവസങ്ങളിലും സമ്മേളനം ഉണ്ടായിരിക്കും സാമൂഹിക അകലം പാലിച്ച് എംപിമാർക്ക് ഇരിപ്പിടം ഒരുക്കുന്നതിനായി ഇരു സഭകളുടെയും ഗ്യാലറികളും ഉപയോഗിക്കും രാജ്യസഭാ ഉപാധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ഇന്നാണ് ദേശ രാജ്യത്ത് കോവിഡ് വാക്സിൻ പുറത്തിറക്കുന്നതിന് പ്രത്യേക സമയക്രമമൊന്നും നിശ്ചയിച്ചിട്ടില്ലെന്നും അടുത്ത വർഷം ആദ്യപാദത്തിൽ വാക്സിൻ തയാറായേക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കേന്ദ്രമന്ത്രി ഡോ

മനുഷ്യരിലെ വാക്സിൻ പരീക്ഷണത്തിന് ഗവൺമെന്റ് എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ചെലവ് പരിഗണിക്കാതെ ഏറ്റവും ആവശ്യമായവർക്ക് വാക്സിൻ ആദ്യം ലഭ്യമാക്കുമെന്ന് അദ്ദേഹം സംവാദ് പ്ലാറ്റ്ഫോമിൽ സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞു മുതിർന്ന പൌരൻമാർക്കും വർദ്ധിച്ച രോഗബാധിത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വാക്സിൻ ആദ്യംതന്നെ നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു

രണ്ട് കോടി പത്ത് ലക്ഷത്തിലേറെ പേർക്ക് ഇതിനകം രോഗം മാറി

ഇന്ന് മുതൽ ഏഴ് ദിവസം ശുചീകരണം വൃക്ഷതൈ വിതരണം ദിവ്യാങ്കർക്ക് സഹായ ഉപകരണ വിതരണം പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും നൽകൽ പ്രമുഖരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് രാവിലെ കോഴിക്കോട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തളി സാമൂതിരി സ്കൂൾ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ജില്ലാതല പരിപാടി കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് പരിസരത്ത് പാർട്ടി ജനറൽ സെക്രട്ടറി എം

രമേശും ഉദ്ഘാടനം ചെയ്യും

കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

പത്മനാഭൻ പഴയ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടത്തും ദേദ ഹിന്ദി ദിവസ് ഇന്ന് രാജ്യവ്യാപകമായി ആഘോഷിക്കും

കേരള ഹിന്ദി പ്രചാര സഭയുടെ സംസ്ഥാന തല ഹിന്ദി പക്ഷാ ഘോഷം രാവിലെ തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും രണ്ടാഴ്ചത്തെ ആഘോഷത്തിന്റെ ഭാഗമായി സാഹിത്യ സെമിനാർ കവി സമ്മേളനം സാഹിത്യ മത്സരങ്ങൾ ഔദ്യോഗിക ഭാഷാശില്പശാല ഹിന്ദി പ്രചാരണ പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട് കാസർകോട്ടെ കേന്ദ്ര സർവകലാശാലയിലടക്കം കേന്ദ്രങ്ങളിലും പക്ഷാചരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

ദേദ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഗവ മെഡിക്കൽ കോളജിന്റെ ഒ

വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ നാടിനു സമർപ്പിക്കും

മെഡിക്കൽ കോളജിന്റെ രണ്ടാം ഘട്ട നിർമാണത്തിൽ ഭരണ വിഭാഗവും ഹോസ്റ്റലുകളും ക്വാർട്ടേഴ്സുകളും ഉൾപ്പടെ പൂർത്തിയാക്കും ദരദ ശരീരത്തിലെ ആന്തരിക രക്തധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന നൂതന സംവിധാനം തിരുവനന്തപുരത്തെ ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചു ഡീപ്പ് വെയിൻ ത്രോംപോസിസ് എന്ന അവസ്ഥ പലപ്പോഴും രോഗികളിൽ മരണത്തിന് വരെ കാരണമാകാറുണ്ട് ഒരു ലക്ഷം രൂപയിൽ താഴെ ചെലവുവരുന്ന യന്ത്ര സംവിധാനമാണ് ശ്രീചിത്തിര തിരുനാളിലെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വികസിപ്പിച്ചത് രുമ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ സ്മരണക്കായി പാലക്കാട് കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ നിർമ്മിക്കുന്ന പൈതൃക സംഗീത ഗ്രാമത്തിന്റെ നിർമ്മാണം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു ചെമ്പൈക്ക് സംഗീതാർച്ചനയും സാംസ്കാരിക ലോകത്തിന് സംഭാവനയുമാണ് പൈതൃക സംഗീത ഗ്രാമമെന്ന് മന്ത്രി പറഞ്ഞു മഹാകവി ഒളപ്പമണ്ണയുടേയും പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂഡന്റെയും സ്മാരക നിർമ്മാണം ചടങ്ങിൽ മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്തു

അലോട്മെന്റ് ലഭിച്ചവർ നിശ്ചിത തീയതിയിലും സമയത്തും അതാത് സ്കൂളുകളിൽ എത്തി പ്രവേശനം നേടേണ്ടതാണ് ദേദ ഇടുക്കി ജില്ലാതല പട്ടയമേള രാവിലെ തൊടുപുഴ മുനിസിപ്പൽ ടൌൺ ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും കുറ്റിയാർ പ്രദേശത്തെ പട്ടയഭൂമി കൈവശക്കാർക്ക് കൈമാറിയതിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും മന്ത്രി നിർവ്വഹിക്കും മന്ത്രി എം എം മണി അദ്ധ്യക്ഷനായിരിക്കും

ചെറുകിട വ്യവസായം സജീവമാക്കാൻ നാലായിരത്തിൽപരം കോടി രൂപയും ചെലവഴിക്കും കോഴിക്കോട് മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ പ്രവർത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേഴ ഹോമിയോ അലോപ്പതി ആയുർവേദ ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമം നടത്തുമെന്ന് മന്ത്രി കെ

ദരദ മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി നാദാപുരം ഉപകേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം നാളെ രാവിലെ മന്ത്രി എ

ബാലൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും

രാഘവന്റെ ഓർമ്മക്ക് വെള്ളൂരിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയം വൈകീട്ട് മന്ത്രി ഉദ്ഘാടനം ചെയ്യും ദേദ ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര തീരത്തിന് സമീപം പുതിയ ന്യൂനമർദം രൂപം കൊണ്ടതോടെ സംസ്ഥാനത്ത് നാല് ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അറബിക്കടൽ പ്രക്ഷുബ്ധമായിരിക്കും ശക്തമായ കാറ്റിന്റെ സാധ്യത മുൻനിർത്തി മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദേശമുണ്ട് ദേദ പാലക്കാട് ശിരിവാണി ഡാം ഇന്ന് തുറന്നുവിട്ടേക്കുമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചു ഡാമിലെ ജലനിരപ്പ് പരമാവധിയോടടുക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ശിരിവാണിപ്പുഴ ഭവാനിപ്പുഴ തീരമേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദേശമുണ്ട്

പാലക്കാട് സ്വദേശി ലക്ഷ്മണന്റെയും അനിത മോളിയുടേയും മകൻ ആദികൃഷ്ണയെയാണ് തിരയിൽപെട്ട് കാണാതായത് തീരത്ത് സെൽഫിയെടുക്കുന്നതിനിടെ തിരയേറ്റത്തിൽ അനിതയും രണ്ട് കുട്ടികളും തിരയിൽപെട്ട് കടലിൽ വീഴുകയായിരുന്നു അപകടത്തിൽപ്പെട്ട അനിതയെയും മറ്റ് രണ്ട് കുട്ടികളേയും കൂടെയുണ്ടായിരുന്ന ബന്ധു രക്ഷപ്പെടുത്തി ദേശ സർവ്വകലാശാലകളിൽ പ്രൈവറ്റ് വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് പാരലൽ കോളജ് അസോസിയേഷൻ ഇന്ന് സംസ്ഥാനത്ത് പ്രതിഷേധ ധർണ്ണ നടത്തും

ദേഴ ഇടുക്കി വട്ടവടയിൽ മുടിവെട്ടുന്നതിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ പൊതു ബാർബർ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി